പട്ടികവിഭാഗക്കാർക്കെതി രായ അതിക്രമ കേസുകളിൽ ആരോപണവിധേയർക്ക് മുൻകൂർ ജാമ്യം നൽകാമെന്ന വൃവസ്ഥയും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടത്താവൂ എന്ന വ്യവസ്ഥയും പാർലമെന്റിൽ ഭേദഗതി ബിൽ പാസ്സാകുന്നതോടെ അസാധുവാകും

ലോക്സഭ നേരത്തെ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു ദേശീയ പട്ടികവിഭാഗ കമ്മീഷന് സമാനമായി ഒ ബി സി വിഭാഗത്തിന് വേണ്ടിയാണ് പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരി ക്കുന്നത്

ഇത് ചരിത്ര നിമിഷമാ ണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു പന്ത്രണ്ടുവയസ്സിൽ കുറഞ്ഞ പെൺകു ട്ടികളെ മാനഭംഗപ്പെടുത്തുന്നവർക്ക് വധശിക്ഷ നൽകുന്ന ക്രിമിനൽ ഭേദഗതി ബില്ലും രാജ്യസഭ ശബ്ദവോട്ടോടെ പാസ്സാക്കി ഇത്തരക്കാർക്ക് കുറഞ്ഞത് ഇരുപത് വർഷം ജയിൽശിക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥ ബില്ലിലുണ്ട് ലോക്സഭ കഴിഞ്ഞ മാസം ബിൽ പാസ്സാക്കിയിരുന്നു രണ്ട രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് രാവിലെ ഒൻപതിന് കൊച്ചി ബോൾഗാട്ടി പാലസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജി മാരുമായും പ്രാതൽ കൂടിക്കാഴ്ച നടത്തും പിന്നീട് തൃശൂരിലേക്ക് ഹെലി കോപ്ടറിൽ യാത്ര തിരിക്കുന്ന രാഷ്ട്രപതി പതിനൊന്നു മണിക്ക് സെന്റ് തോമസ് കോളജിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇതിനുശേഷം ഗുരുവായൂരിലേക്ക് പോകുന്ന രാംനാഥ് കോവിന്ദ് മമ്മിയൂർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും തിരികെ കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി ഉച്ചയ്ക്ക് രണ്ടേമുക്കാലിന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും ഇന്നലെ തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ യാത്രതിരിച്ച രാഷ്ട്രപതിക്ക് ഗവർണറും സ്പീക്കറും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് യാത്ര യയപ്പ് നൽകി രദേഷ്ടെടു ഓണം ബക്രീദ് ഉത്സവ കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ ന്യായ വിലയ്ക്ക് ലഭ്യമാക്കാൻ എണ്ണായിരത്തോളം പ്രത്യേക ചന്തകൾ തുടങ്ങും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സാന്നിധൃത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം

മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും സബ്സിഡി നിരക്കിലും ഫ്രീസെയിൽ നിരക്കിലും പതിമൂന്ന് ഇനം നിത്യോ പയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി തിലോത്തമൻ അറി യിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓണം ബക്രീദ് ഫെയറുകളും താലൂക്ക് ആസ്ഥാനങ്ങളിൽ ഓണം ബക്രീദ് മേളകളും സംഘടിപ്പിക്കും

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ധർമ്മ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് എത്തുന്നത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ സംഘം സന്ദർശനം നടത്തും മൂന്ന് ദിവസം കേര ളത്തിൽ തുടരുന്ന സംഘം മറ്റന്നാൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

കെ ധവാൻ അന്തരിച്ചു

ഇന്നലെ രാത്രി ഏഴുമണി യോടെ ന്യൂഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

കെ ധവാൻ

കെ ധവാന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുശോചിച്ചു

എസ് ആർ ടി സി ഉൾപ്പെടെ ബസ്സുകൾ ചർക്കുവാഹനങ്ങൾ ടാക്സി കാറുകൾ ഓട്ടോറിക്ഷകൾ എന്നിവ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മോട്ടോർ വാഹന പണിമുടക്കിന്റെ സാഹചര്യത്തിൽ ഇന്നത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാംവർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ പുനഃക്രമീകരിച്ചു ഇന്നത്തെ സർവ്വകലാശാലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ അഖി ലേന്ത്യാ ട്രേഡ് ടെസ്റ്റ് പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ലെന്ന് കണ്ണൂർ ഗവൺമെന്റ് ഐ ടി

നേരത്തെ നിശ്ചയിച്ചു ടൈംടേബിൾ പ്രകാരം പരീക്ഷകൾ നടക്കും

എം ജോസഫ് ഇന്ദിര ബാനർജി വിനീത് സരൺ എന്നിവർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പത്തരയ്ക്ക് സുപ്രീംകോടതിയിലെ ഒന്നാം കോടതി മുറിയിലാണ് സത്യപ്ര തിജ്ഞാ ചടങ്ങ് അതിനിടെ കെ എം ജോസഫിനെ സീനിയോറിറ്റി പട്ടിക യിൽ താഴെയാക്കിയ നടപടിയിൽ പ്രതിഷേധവുമായി സുപ്രീംകോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായ മദൻ ബി ലോക്കൂർ കുര്യൻ ജോസഫ് എ കെ സിക്രി എന്നിവർ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ കണ്ടു ഈ വിഷയം പരിഗ ണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു രദ്ദേഷ്ടങ ചെന്നൈ കാവേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി

കെ നേതാവുമായ എം കരുണാനിധിയുടെ നില അതീവ ഗുരുതരമാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ജലോത്സവം ഉദ്ഘാടനം ചെയ്യും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും

ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചും ഒമാൻ എയർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് അടിസ്ഥാന നിരക്കിൽ ഏഴ് ശതമാനം ഇളവ് നൽകുന്ന പദ്ധതിയാണിത് നോർക്കയുടെ എമർജൻസി ആംബുലൻസ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് നോർക്ക റൂട്ട്സ് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ കെ വരദരാജൻ അറിയിച്ചു ദർവ്വെട്ടറ ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് കൌൺസലിംഗ് നൽകാൻ തിരുവനന്ത പുരം എക്സൈസ് ആസ്ഥാനത്ത് ആരംഭിക്കുന്ന കേന്ദ്രം ഇന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ലഹരിവർജ്ജന മിഷന്റെ കീഴിലാണ് കൌൺസലിംഗ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്

ഇ യിലെ പൊതുമാപ്പിന്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് നോർക്ക റൂട്ട്സ് വിദേശത്തും കേരളത്തിലും വിപുലമായ സഹായ സംവിധാനം ഏർപ്പെടുത്തി തിരിച്ചുവരവിന്റെ ചെലവും മറ്റ് സഹായങ്ങളും നൽകാൻ നിരവധി പ്രവാസികൾ വാഗ്ദാനം ചെയ്തിട്ടു ണ്ട് മടങ്ങിയെത്തുന്നവർക്കായി നോർക്ക് നൂതന പദ്ധതികൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്

ജെ

എസ് ശ്രീധരൻപിള്ളയ്ക്ക് ഇന്ന് കണ്ണൂരിൽ സ്വീകരണം നൽകും രാവിലെ റെയിൽവെ സ്റ്റേഷനിലാണ് ജില്ലാ കമ്മിറ്റി സ്വീകരണമൊരുക്കുന്നത് തുടർന്ന് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി മണ്ഡപത്തിൽ ശ്രീധരൻപിള്ള പുഷ്പാർച്ചന നടത്തും രദ്ദേഷ്ടങ തൊടുപുഴ വണ്ണപ്പുറം കമ്പകക്കാനത്ത് ഒരു കുടുംബത്തിലെ നാല് പേരെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിന്റെ വിശദാംശങ്ങൾ വൃക്തമായി കൊല്ലപ്പെട്ട കൃഷ്ണന്റെ ശിഷ്യനായ അടിമാലിക്കാരനായ അനീഷും കാരിക്കോട് സ്വദേശിയായ സുഹൃത്ത് ലിബീഷും ചേർന്നാണ് കൂട്ടക്കൊലപാതകം നടത്തിയതെന്ന് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു കൃഷ്ണന്റെ മാന്ത്രികസിദ്ധി ലഭിക്കാനായാണ് ഇവർ കൊലപാതകം നടത്തിയത് ലിബീഷിനെ പൊലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇയാൾ പൊലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ദർവ്വെടുക വയനാട് കൊട്ടത്തറയ്ക്കടുത്ത് വെണ്ണിയോട് പുഴയിൽ കാണാതായ ട നാലംഗ കുടുംബത്തിലെ ഒരാളുടെകൂടി മൃതദേഹം കണ്ടെത്തി ചുണ്ടേൽ ആനപ്പാറ കല്പുരുട്ടിപറമ്പിൽ നാരായണന്റെ ഭാര്യ ശ്രീജയുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത്

ഇവരുടെ മക്കളായ സൂര്യ സായൂജ് എന്നിവർക്കായി ഇന്നും തെരച്ചിൽ തുടരും ദർവ്വട്ടെഴ ഓണക്കാലത്ത് തോട്ടം മേഖലയിൽ വിതരണം ചെയ്യാൻ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് മൂന്നാറിൽ പിടികൂടി നയമക്കാട് എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിൽ പൊന്തക്കാടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അറുനൂറ് ലിറ്ററോളം വരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് നയമക്കാട് എസ്റ്റേറ്റ് സ്വദേശി പ്രഭാകരനെതിരെ എക്സൈസ് കേസെടുത്തു

വിരാജ്പേട്ടയിൽ നിന്ന് ആഡംബര കാറിലാണ് പുകയില ഉത്പന്നങ്ങൾ കട ത്താൻ ശ്രമിച്ചത് കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കാസർകോട് ജില്ലാതല ഓണം ബക്രീദ് ഖാദിമേള കാഞ്ഞങ്ങാട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ

മേളയുടെ ഭാഗമായി ഗ്രാമവൃവസായ ഉത്പന്നങ്ങളുടെ വിപണന മേള ഒരുക്കിയിട്ടുണ്ട്